സംഭരിക്കുന്നതിന് ചെറുകിട വൃദൃപാരികൾക്ക് ഏർപ്പെടുത്തിയ പരിധി ഗവൺമെന്റ് വീണ്ടും കുറച്ചു

കാണികൾക്ക് ഹരംപകർന്ന് ലോക സിനിമകൾ

ചിലഗോത്രമേഖലകളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെച്ച്ല പ്രദേശങ്ങളെയും ബില്ലിൽ നിന്ന്ഒഴിവാക്കിയിട്ടുണ്ട്

ഇന്ത്യവർഷങ്ങളായി പിന്തുടരുന്ന മാനുഷികമൂല്യങ്ങൾവിലമതീക്കുന്നതാണ് ബില്ലെന്ന് പ്രധാനമന്ത്രി ടിറ്റർസന്ദേശത്തിൽഅറിയിച്ചു ബിൽ പാസാക്കാൻ പിന്തുണച്ച കക്ഷികൾക്കുംആഭ്യന്തര മന്തി അമിത്ഷായ്ക്കും ശ്രീ

പൌരത്വംഅടിസ്ഥാനമാക്കിയുള്ളമതവിവേചനം നിർത്തലാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെആവശ്യം ജനങ്ങൾക്കിടയിലേക്ക് ഈ വിഷയംഎത്തിക്കുമെന്ന്സിപിഐഎം നേതാവ് പി

നടരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു

വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല പ്രതിഷേധക്കാർ ചില സ്ഥലങ്ങളിൽ റെയിൽവേ പാതകൾ ഉപരോധിച്ചത് തീവണ്ടി ഗതാഗത്തെ ബാധിച്ചു

മറ്റിടങ്ങളിൽഅഞ്ചിനാണ്കൊട്ടിക്കലാശം

ഉള്ളിവില നിയന്ത്രിക്കുന്നതിന്റെയും ലഭ്യത ഉറപ്പു വരുത്തുന്നതിന്റെയും ഭാഗമായിട്ടാണ് തീരുമാനം നിലവിലെ പരിധിയായ അഞ്ച് മെട്രിക് ടണ്ണിൽ നിന്ന് രണ്ട് മെട്രിക് ടണ്ണായാണ് കുറച്ചത്

പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ കൂടുതൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഉപഭോക്തൃകാരൃ മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു ഉള്ളി ഇറക്കുമതിക്ക് വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി

ജമ്മുവിലെ ഫലഭൂയിഷ്ഠമായ കാണ്ടി പ്രദേശങ്ങളിൽ മുളയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക വാണിജ്യ ഉൽപന്നം എന്ന നിലയിൽ മുള്യൂടെ മൂല്യം വർദ്ധിപ്പിക്കുക സംരംഭങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്നിവയാണ് ശിൽപശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്

രാത്രികാലത്ത് വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെ പോലീസ് സുരക്ഷിതമായി വീട്ടിലെത്തിക്കും

വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യം പരിഹരിക്കുന്നതിന് ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായി ഇന്ത്യ മുൻകൈയെടുത്ത സംരംഭമാണ് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹോളണ്ടും ചേർന്ന് പാരീസിൽ വച്ചാണ് സഖ്യം നടപ്പിലാക്കിയതെന്നും അത് ഒരു പുതിയ തുടക്കമായിരുന്നു എന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

മനുഷ്യാവകാശങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കേണ്ടത്സമൂഹത്തിന്റെകൂട്ടായഉത്തരവാദിത്തമാണെന്ന്രാഷ്ട്രപ തിരാംനാഥ്കോവിന്ദ് ദ്ദീനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽസംഘടിപ്പിച്ചചടങ്ങിൽസാസ്ട്രിക്കുകയായിരുന്നുഅദ്ദേ ഹം

ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസം സംബന്ധിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസമെന്നാൽ തൊഴിൽ നേടാനുള്ള സംവിധാനം എന്നതിലുപരി വൃക്തിവികസനത്തിന്റെയും സമൂഹശാക്തീകരണത്തിന്റെയും ഉപാധി കൂടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ട്രംപ് അധികാരദുർവിനിയോഗം നടത്തിയതിനും കൈക്കൂലിവാങ്ങിയതിനും ഉക്രെയ്നിൽ അനധികൃതമായി നിന്നും രാഷ്ട്രീയ ആനുകൂല്യങ്ങൾആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണംതടസ്സപ്പെടുത്തിയതിനുംമതിയായതെളിവുകളുണ്ടെന്നുംഡെയ മാക്രാറ്റുകൾവ്യക്തമാക്കി

വിദേശ സഞ്ചാരികൾ സ്ഥിരമായി എത്തുന്ന ദ്വീപിലാണ് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായത് കാണാത്യവർ ആരും രക്ഷപ്പെട്ടതായി സൂചനയില്ലെന്ന് പോലീസ് അറ്റിയിച്ചു

ലോറർ അന്തരിച്ചു

ഐ ബി

മത്സര വിഭാഗത്തിൽ ലിജോ ജോസ് പെല്ലിശേരിയുടെ ജെല്ലിക്കെട്ട് എന്ന ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഇന്ന് വൈകിട്ട് നടക്കും ഈ ചിത്രത്തിലൂടെയാണ് മികച്ച സംവിധായകനുള്ള രജത മയൂരം ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ലിജോ സ്വന്തമാക്കിയത് പെർസിമ്മൺസ് ഗ്രൂ കാമിൽ എന്നീ മത്സ്ത്ര ചിത്രങ്ങളുടെ മേളയിലെ ആദ്യ പ്രദർശനവും ഇന്ന് നടക്കും ഫില്ലാസ്ട്ര ചൈൽഡ്ദി ഹ്യൂമറിസ്റ് പക്കാഹേത് ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്നീ മത്സര ചിത്രങ്ങളുടെ അവസാന പ്രദർശനമാണ് ഇന്ന് നടക്കുന്നത്